ഓക്സിജന്റെയും ലഭൃത ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

രാഖ്ദ്യൂതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക് ല്ക്ഷ്യം

വ്രതശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ

കോവിഡ് സാഹചര്യത്തിൽ പ്രാർത്ഥനയും ആഘോഷങ്ങളും വീടുകളിൽ നടത്തണമെന്ന് മുഖൃമന്ത്രി

ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം

കോവിഡിനും മ്യൂക്കോമൈക്കോസിസിനും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിതരണം സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട് ഇവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശൃ്മൂായ എല്ലാ നടപടികളും നിർമ്മാതാക്കൾ സ്വീകരിച്ചിട്ടുണ്ട്

കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് റെംസ്റ്റെസിവിർ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളുടെയും ഉൽപാദ്ന്ം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മരുന്ന് ഉത്ഷ്ടാദ്യ മേഖലയുമായി സർക്കാരിന്റെ ഏകോപനത്തിലൂടെ എല്ലാ മ്രുന്നുകളുടെയും ശരിയായ ലഭ്യത ഉറപ്പാക്കുമെന്നും പ്രധാർമീന്റ്രി പറഞ്ഞു രാജ്യത്ത് ഓക്സിജൻ ലഭ്യതയെയും വിതരണത്തെയും കുറിച്ചുള്ള സ്ഥിതിഗതികളും പ്രധാനമന്ത്രി വിലയിരുത്തി

അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതിക്ക് സർക്കാർ പച്ചകൊടി കാട്ടിയത് ഏറെ പണച്ചെലവുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും കഴിയും

ബാറ്ററി നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിക്കുന്നവർക്ക് സർക്കാർ സഹായം ലഭിക്കും

ഓക്സികെയർ സംവിധാനം രോഗിയുടെ ഓക്സിജൻ നില അടിസ്ഥാനമാക്കി ആവശ്യമായ അളവിൽ ഓക്സിജൻ നൽകുകയും വൃക്തി ഹൈപ്പോക്സിയ അവസ്ഥയിലാകുന്നത് തടയുകയും ചെയ്യുന്നു ഉയരം കൂടിയ പ്രദേശത്ത് നിയോഗിക്കപ്പെട്ട സേനാംഗങ്ങൾക്കായി ഡിആർഡിഒയുടെ ബെംഗളൂരുവിലെ ഡിഫൻസ് ബ്യോ എഞ്ചിനീയറിംഗ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറിയാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത്

ഓക്സിജന്റെ അളവ് നിർണയിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതിന് മനുഷ്യ സഹായം ആവശ്യമില്ലാത്ത ഈ സംവിധാനം ആരോഗ്യ പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കുകയും രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നത് ഗണ്വമായി ഒഴിവാക്കുകയും ചെയ്യും

കോവിഡ് വ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി എം

നിരവധി അധ്യാപകരും ജീവനക്കാരും കോവിഡ് ട്രിബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ സർവ്വകലാശാല വൈസ്കൃഷ്ട്രിച്ചാൻസിലറുമായി നേരത്തെ അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു സ്ർപ്പകലാശാല അധികൃതർക്ക് കോവിഡ് വാക്സിനേഷനുമായി ബ്ഡപ്പെട്ട് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ശ്രീ ആദിത്യനാഥ് ഉറപ്പ് നൽകി

ഒരു റിപ്പോർട്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് മുതൽ ്വർമുനിസിപ്പൽ മേഖലകളിൽ വേഗത്തിലുള്ള ആന്റിജൻ പരിശോദ്ധന്യ്ക്കുള്ള സൌകര്യം ലഭിക്കും

ആരോഗ്യ സുരക്ഷാ വാരത്തിന്റെ ഭാഗ്മായി നടപ്പാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ രണ്ടാഴ്ച കാലത്തേക്കാണ് നീട്ടിയത്

ജപ്പാന് പുറമെ യു

റഷ്യ യു എസ് തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് സഹായ ഹസ്തം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്

കോവിഡ് സാഹചര്യത്തിൽ ഈദ്ഗാഹുകളോ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരങ്ങളോ ഒത്തുചേരലുകളോ ഇല്ലാത്ത ചെറിയ പെരുന്നാളാണ് ഇന്ന് കർശനമായ കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കും ഇക്കുറി പെരുന്നാൾ ആഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ ജനങ്ങൾക്കും ചെറിയ പെരുനാൾ ആശംസകൾ നേർന്നു കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഈദ് ദിന പ്രാർത്ഥനയും ആഘോഷങ്ങളും വീട്ടിൽ നടത്തുന്നതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കാൻ എല്ലാവരും തയാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു

മഴ ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിനും പ്രസാധ്യതയുണ്ട് മലയോര മേഖകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യത്രിയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്